ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സന്ദർശിച്ചു കേന്ദ്രത്തില്ലെട്രപ്പാക്സിൻ വികസനവും ഉൽപാദന് പ്രഖ്കിയയും പ്രധാനമന്ത്രി അവല്ലോക്നം ചെയ്തു

ജർമനിയുടെ നിക്ഷേപം ക്ഷണിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർധൻ ശൃംഗ്ല

സിയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും

സിഡസ് കാഡില ഫാർമ്സ്യൂട്ടിക്കലിലെ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച്ച ന്ടർത്തിയ അദ്ദേഹം വാക്സിൻ വികസന പ്രക്രിയശ്വരീക്ഷണങ്ങൾ അന്തിമഘട്ടം പൂർത്തിയാകാൻ എടുക്കുന്ന് സമ്യം എന്നിവ അവലോകനം ചെയ്തു സിഡസ് കാഡില്യുടെ രണ്ടാം ഘട്ട പരീക്ഷണ ഫലങ്ങൾ അടുത്ത ആഴ്ച് സമർപ്പിക്കാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കീ് അടുത്ത വർഷം മാർച്ചോടെ വാക്സിൻ പുറത്തിറക്കാനാണ് ശ്രമം വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും അവലോകനം ചെയ്യുന്നതിനായി അഹമ്മദാബാദ് ഹൈദരാബാദ് പൂനെ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്

വാക്സിൻ വികസനവും ഉൽപാദന പ്രക്രിയയും അവലോകനം ചെയ്യുന്നതിനായി അഹമ്മദാബാദ് ഹൈദരാബാദ് പൂനെ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം ഇതിനു തെളിവാണ് പകർച്ചവ്യാധിയെ അദ്ദേഹം ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

ഉ്ന്ന്ത് ഗുണനിലവാരമുള്ള പരിശോധനാരീതി രോഗികളെ നേർത്തെ കണ്ടെത്തുന്നതിനും നിരീക്ഷണത്തിൽ ആക്കുന്നതിനും ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും സഹായിക്കുർമെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

ചുഴലിക്കാറ്റിൽ സംസ്ഥാനത്തിന് ഉണ്ട്ടാ്യ് നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായും നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കേഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദൃം ചെയത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും സൈനിക വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ ഹംപി ഹോലി ഡെപ്യൂട്ടി കമാൻറൻറ് റിയർ അഡ്മിറൽ തരുൺ സോപ്തി അക്കാദമി പ്രിൻസിപ്പൽ റിയർ അഡ്മിറൽ കെ

കോവിഡ് നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ കേഡറ്റുകളുടെ കുടുംബാംഗങ്ങളുടെ അഭാവത്തിലാണ് പരേഡ് നടന്നത്

വികസന പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിക്കുന്നതിന് രണ്ടു മാസത്തിലൊരിക്കൽ എം

ഒരു റിപ്പോർട്ട് ആഗോള വിതരണ ശൃംഖലയുടെ നിർമാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനുള്ള അവസരമാണ് ഉയർന്നുവന്നിരിക്കുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷ വർധൻ ശൃംഗ്ല പറഞ്ഞു

ആഭ്യന്തര ഉൽപ്പാദനവും ഉപഭോഗവും ആഗോള വിതരണ ശൃംഖലയുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ ആത്മ നിർഭർ ഭാരത് പദ്ധതിഎന്നും അദ്ദേഹം വ്യക്തമാക്കി ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ നിരവധി ഉദാരവൽക്കരണ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്

നൂതനാശയങ്ങൾ ഡിജിറ്റൈസേഷൻ സ്റ്റാർട്ടപ്പുകൾ നിർമ്മിത ബുദ്ധിതുടങ്ങി ഉയർന്നുവരുന്ന പുതിയ സാങ്കേതികവിദൃകളിൽ ഇരുരാജൃങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതകളേറെ ഉണ്ട് ഇന്ത്യയും ജർമനിയും തമ്മിലുള്ളബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ തെളിവാണ് ജർമനി പുറത്തിറക്കിയ ഇൻഡോ പസഫിക് മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നും ശ്രീ ഹർഷ് വർധൻ ശൃംഗ്ല അഭിപ്രായപ്പെട്ടു ജർമ്മനി അന്താരാഷ്ട്ര സൌര സഖ്യത്തിൽ ചേരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പഞ്ചാബ് ഹരിയാന കേരളം തമിഴ്നാട് ആന്ധ്രപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം സുഗമമായി തുടരുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തൊമർ അറിയിച്ചു

ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാറിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തോട് അനുബന്ധിച്ച് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സർക്കാരിന് സ്ഥിരത ഉണ്ടെന്നും സഖ്യകക്ഷികളുടെ ആശയങ്ങൾ തമ്മിൽ വൃത്യാസം ഉണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപ്പര്യത്തിനായി എല്ലാ പാർട്ടികളും ഒരുമിച്ചു പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ അന്തിമ തീരുമാനം സർക്കാർ എടുക്കും

ക്ലാസ്സിനെത്തുന്ന വിദ്യാർഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും രക്ഷിതാക്കളുടെ സമ്മതപത്രവും ഹാജരാക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി അമിതാഭ് അവസ്തി അറിയിച്ചു

തുടർന്ന് പരിപാടിയുടെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം